ജനാധിപത്യ സംരക്ഷണ പോരാട്ടമാണ് ഇത്തവണത്തെ തെര ഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതിയംഗം ഗുലാം നബി ആസാദ്

രാഷ്ട്രീയ നേതാക്കളും സ്ഥാനാർത്ഥികളും കോടതി ഉത്ത രവുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ബി ജെ പി ഹർജി

ൾ ൽ ൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പ്രചാ രണത്തിന് മറ്റന്നാൾ സമാപനമാകും

സംസ്ഥാനത്ത് മുന്നണികളും സ്ഥാനാർത്ഥികളും അവസാനഘട്ട വോട്ടഭ്യർത്ഥനയുടെ തിരക്കുകളിലാണ് സിപിഐഎം നേതൃത്വം നൽകുന്ന എൽ ഡി എഫും കോൺഗ്രസ് നേതൃത്വത്തിലെ യു ഡി എഫും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും തമ്മിലാണ് സംസ്ഥാനത്ത് പ്രധാന മത്സരം സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിവസത്തെ നേട്ടങ്ങളും കേന്ദ്ര വിരുദ്ധ നിലപാടുകളുമാണ് എൽ ഡി എഫിന്റെ പ്രചാരണ വിഷയം സിപി ഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് വൃന്ദകാരാട്ട് തുടങ്ങിയ ദേശീയ നേതാക്കളാണ് എൽ ഡി എഫ് പ്രചാരണം നയിക്കുന്നത് ബി ജെ പ്പി ഗവൺമെന്റിന്റെ നോട്ട് നിരോധനം ഗോ വധ നിരോധനം സ്ഠ്സ്ഥാനത്തെ വികസന മുര ടിപ്പ് എന്നിവയാണ് യു ഡി എഫിന്റെ പ്രചാരണ ആയുധങ്ങൾ രാഹുൽഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം നൽകിയ ആത്മവിശ്വാസമാണ് യു ഡി എഫിനെ നയിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണനേട്ടങ്ങളുയർത്തി പ്രധാനമന്ത്രിയടക്കം നേതാക്കളെ അണിനിരത്തിയാണ് എൻ ഡി എ വോട്ടർമാരെ സമീ പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വെള്ളിയാ ഴ്ചയും ഇന്നലെയും സംസ്ഥാനത്ത് പ്രചാരണത്തിന് എത്തിയ തിന്റെ ആത്മവിശ്വാസത്തിലാണ് അവർ കടുത്ത ചൂടിനെ അവ ഗണിച്ച് മുന്നണി നേതാക്കൾ വിവിധ സ്ഥലങ്ങളിലെത്തുമ്പോൾ അണികളും ആവേശ ച്ചൂടിലാണ്

അടുത്തമാസം നാണ് ഫലപ്രഖ്യാപനം മുഖ്യ മന്ത്രി പിണ റായി വിജ യൻ ഇന്ന് വൈകീട്ട് കാസർക്കോട്ടും കണ്ണൂരിലും ഇടതുമുന്നണി പ്രചാരണ യോഗ ങ്ങളിൽ പങ്കെടുക്കും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാ റാം യെച്ചൂരി നാളെ വൈകീട്ട് കാലിക്കടവിൽ എൽ ഡി എഫ് പൊതുയോഗത്തിൽ സംബന്ധിക്കും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി നാളെ രാവിലെ കാസർക്കോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോ ടനുബന്ധിച്ച റോഡ് ഷോയിൽ പങ്കെടുക്കും

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ് ണൻ മന്ത്രി ഇ

ജയരാജൻ മാത്യു ടി തോമസ് എന്നിവർ ഇന്ന് കണ്ണൂരിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും ജനാധിപത്യ സംരക്ഷണത്തിന് നടത്തുന്ന പോരാട്ടമാണ് ഇത്ത വണത്തെ തിരഞ്ഞെടുപ്പെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഗുലാം നബി ആസാദ് മട്ടന്നൂരിൽ പറഞ്ഞു രാജൃത്തിന്റെ ഭരണഘടനയെയും മതേതരത്തെയും ഇല്ലാതാക്കാനാണ് മോദി ഗവ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥി യുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു

തിരുവമ്പാടി മണ്ഡലത്തിലെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദ്ദ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുമോയെന്ന് ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പാർലമെന്റിൽ ശക്തിപ്പെടേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോഴിക്കോട്ട് പറഞ്ഞു ജനപക്ഷ വികസനം നടപ്പിലാവണം എൻ ഡി എ ഭരണത്തിൽ പണക്കാരൻ പണക്കാരനായും പാവങ്ങൾ പാവങ്ങളായും തുടരുന്ന സാഹച ര്യമാണെന്ന് എൽ ഡി എഫ് പ്രചാരണ യോഗത്തിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് തേനിയിൽ തെരഞ്ഞെ ടുപ്പ് പൊതുയോഗത്തിനിടെ ശബരിമല് വിഷയം പരാമർശിച്ച തിനെക്കുറിച്ച് റിപ്പോർട്ട് തേടിയതായി ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീ ഷണർ ചന്ദ്രഭൂഷൺ കുമാർ ന്യൂഡൽഹിയിൽ അറിയിച്ചു എൽ ഡി എഫും മുസ്തീം ലീഗും ശബരിമല് വിഷയത്തിൽ അപകടകര മായ കളി കളിക്കുകയാണെന്നും വിശ്വാസത്തിന്റെ പേരിലാണ് അവർ അക്രമം നടത്തുന്നതെന്നുമായിരുന്നു പരാമർശം സിപി ഐഎമ്മാണ് ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽഗാന്ധിയുടെ ആക്ഷേപ പരാമർശത്തിലും റിപ്പോർട്ട് പരിശോധിച്ചു വരികയാ ണെന്ന് ചന്ദ്രഭൂഷൺ കുമാർ മാധ്യമങ്ങളെ അറിയിച്ചു രാഷ്ട്രീയ നേതാക്കളും സ്ഥാനാർത്ഥികളും കോടതി ഉത്തര വുകൾ തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ജനപ്രാതിനിധൃ നിയമ പ്രകാരം അഴിമതിയായി പ്രഖ്യാപിക്കണ മെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ബി ജെ പി നേതാവ് അശ്വിനികുമാർഉപാധ്യായ ഹർജി നൽകി മതം ജാതി വർഗം ഭാഷ എന്നിവയുടെ പേരിൽ വോട്ടഭ്യർത്ഥിച്ചാൽ പരാതി അന്വേ ഷണ ഏജൻസികൾക്ക് കൈമാറുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീ ഷന് നിർദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യമുന്നയി ച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വരാണസിയിൽ പ്രിയ ങ്കാഗാന്ധി സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യം സസ്പെൻസാ യിരിക്കട്ടെയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പറ ഞ്ഞു ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാർട്ടി ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ തള്ളാതെ രാഹുൽ പ്രതികരിച്ചത് വിശ്വാസ സംരക്ഷണത്തിനായി എന്നും നിലകൊള്ളുന്ന പാർട്ടി കോൺഗ്രസാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നി ത്തല പറഞ്ഞു ശബരിമല വിഷയത്തിൽ സിപിഐഎമ്മിനും ബി ജെ പിക്കും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ടെന്നും അദ്ദേഹം തിരു വനന്തപുരത്ത് പറഞ്ഞു

ഇതു പ്രകാരം അവധി പ്രഖ്യാപിച്ച് നാളെ ഉത്തരവിറങ്ങിയേക്കും മാതാപിതാക്കളുടെ മർദ്ദനമേറ്റ് എറണാകുളത്തെ സ്ഥകാരൃ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മൂന്നു വയസ്സുകാരൻ മരി ച്ചു അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന കൂട്ടി ഇന്ന് രാവിലെ യാണ് മരിച്ചത് സംഭവത്തിൽ കുട്ടിയുടെ മാതാവ് ജാർക്കണ്ഡ് സ്വദേശി ഹെനയെ പൊലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു കുസൃതി കാട്ടിയതിന് അടുക്കളയിൽവെച്ച് മർദ്ദിച്ചുവെന്ന് സമ്മ തിച്ചതോടെയാണ് മാതാവ് അറസ്റ്റിലായത് കുട്ടി മരിച്ചതോടെ അമ്മ യ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്ന് പൊലീസ് അറി യിച്ചു

ആലുവയിൽ മർദ്ദ നമേറ്റ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് എല്ലാ ശ്രമവും നടത്തിയെന്നും കുഞ്ഞിന്റെ മർണം ഏറെ ഖേദകരമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ സുര ക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി ശരണബാല്യം പോലെ ബഹു മുഖ പദ്ധതികൾ ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും മന്ത്രി വ്യക്ത മാക്കി

ഗവൺമെന്റ് നിയോഗിച്ച ഷെഫീഖ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ അധികരിച്ചാണ് സർവെ നടത്തിയത്

മനുഷൃരാശിയുടെ രക്ഷക്കായി കാൽവരിയിൽ കുരിശുമരണം വരിച്ച യേശുദേവന്റെ പീഡാനുഭവ സ്മരണകളുമായി ക്രൈസ്ത വർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു

യേശു കാൽവരിയാത്രയിൽ അനുഭവിച്ച ദുരിതങ്ങൾ അനു സ്മരിച്ച് ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ കുരിശിന്റെ യാത്ര സംഘ ടിപ്പിച്ചിട്ടുണ്ട്

വയനാട് ചുരത്തിലൂടെയുള്ള കുരിശിന്റെ വഴിയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു മതത്തിന്റെയും സമുദായത്തിന്റെയും പേരിൽ വേർതിരിവു കൾ സൃഷ്ടിക്കുന്ന കാലമാണിതെന്ന് കർദിനാൾ മാർ ക്ലിമ്മിസ് കാതോലിക്കാ ബാവ പറഞ്ഞു രാജ്യാഭിവൃദ്ധിക്കായി സഭാവിശ്വാ സികൾ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ്തിരുവനന്തപുരത്ത് ദുഃഖവെള്ളി ആചരണ വേളയിൽ ആവശ്യപ്പെട്ടു നവജാത ശിശുവിനെ ചികിത്സയ്ക്കായി ആംബുലൻസിൽ മംഗലാപുരത്തു നിന്ന് കൊച്ചിയിലെത്തിച്ച സംഭവത്തെക്കുറിച്ച് മതസ്പർധയുണ്ടാക്കും വിധം ഫെയ്സ്ബുക്കിൽ പോസ്റ്റിട്ടയാളെ കൊച്ചിയിൽ അറസ്റ്റു ചെയ്തു

സംഭവത്തെക്കുറിച്ച് സൈബർ സെൽ പ്രാഥമിക അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടി സ്ഥാനത്തിലാണ് അറസ്റ്റ്

എക്സൈസ് സർക്കിൾ ഓഫീസിലെത്തിയ അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് നിർദേശിച്ചത് കഞ്ചാവ് കയറ്റിവിട്ട സംഘത്തെ കണ്ടെത്തുന്നതിന് അന്വേഷക സംഘം ഏതാനും ദിവസത്തിനുള്ളിൽ പാറ്റ്നയിലേക്ക് പോകും തിങ്കളാഴ്ച രാത്രിയാണ് പാറ്റ്ന എറണാകുളം എക്സ്പ്രസിൽനിന്ന് കഞ്ചാവ് കണ്ടെത്തിയത് ക്ല പ്ര ജെറ്റ് എയർവെയ്സിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരി ക്കാൻ അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് ജീവനക്കാർ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു വായ്പാ അപേക്ഷ ബാങ്കുകൾ നിരസിച്ചതിനെ തുടർന്ന് ജെറ്റ് എയർവെയ്സ് ബുധ നാഴ്ച മുതൽ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്

സ്പൈസ് ജെറ്റിന്റെ കോഴിക്കോട് ജിദ്ദ വിമാന സർവീസിന് നാളെ തുടക്കമാകും ആഴ്ചയിൽ എല്ലാ ദിവസവും ബംഗളുരു വുമായി ബന്ധിപ്പിച്ചാണ് സർവീസ്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

മലപ്പുറം പാല ക്കാട് വയനാട് കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ ഉരുൾപൊ ട്ടൽ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലേക്ക് യാത്ര ഒഴി വാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും രാത്രി എട്ടിന് കൊൽക്കത്തയിലാണ് മത്സരം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് കണ്ണൂർ ജില്ലയിൽ പരിശോധന കർശനമാക്കി

പ്രത്യേക പരി ശീലനം ലഭിച്ച ഡോഗ് സ്കാഡിന്റെ നേതൃത്വത്തിലും പരിശോ ധന നടക്കുന്നുണ്ട്